ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ത്രിദിന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും

ഇന്ത്യ വെസ്റ്റിന്റീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തേതുമായ മത്സരം ഇന്ന് രാവിലെ ഹൈദരാബാദിൽ ആരംഭിക്കും

കമ്മീഷന്റെ പുതിയ വെബ്സൈറ്റിനു പ്രധാനമന്ത്രി തുടക്കം കുറിക്കും

സൌഹൃദപരമായിരിക്കും ഉപഭോക്ത്യ പുതിയ ദിനാചരണത്തിന്റെ ഭാഗമായി തപാൽ സ്റ്റാമ്പും പ്രത്യേക തപാൽ കവറും പുറത്തിറക്കും

സഹമന്ത്രി ഇതോടനുബന്ധിച്ച് മനുഷ്യാവകാശ നാളെ മേളയും മനുഷ്യാവകാശം വിഷയമാക്കിയുള്ള തെരുവ് നാടകങ്ങളും സംഘടിപ്പിക്കും

വിവരാവകാശ നിയമത്തിലെ ഭേദഗതികൾ നിയമത്തിന്റെ നടപ്പാക്കൽ തുടങ്ങി വിവിധ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും

ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ തടവു കാർക്ക് മോചന സമയത്ത് നൽകും

വധശിക്ഷയ്ക്കൊ ജീവപര്യന്ത ത്തിനോ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളെ മോചിപ്പിക്കില്ല ഇതോടൊപ്പം സ്ത്രീധന കൊലപാതകം ബലാത്സംഗം മനുഷ്യക്കടത്ത് അഴിമതി അനധികൃത പണമിടപാട് തുടങ്ങിയ ഗൌരവമായ കുറ്റകൃതൃങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരേയും മോചിപ്പിക്കില്ല

പശ്ചിമ ബംഗാളിലെ ബണ്ടാലയിൽ മെഗാ ലെതർ ക്ലസ്റ്റർ സ്ഥാപിക്കാൻ അംഗീകാരം നൽകിയതായും വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു

ന്യൂഡൽഹി യിൽ വ്യോമസേന കമാൻഡർമാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുത്തൻ സാങ്കേതിക വിദ്യഏറ്റവുമാദ്യം നടപ്പാക്കുന്നത് വ്യോമയാന മന്ത്രാലയത്തിലാ ണെന്നും അദ്ദേഹം പറഞ്ഞു

സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ച ഗ്രാന്റുകൾ ദുരന്തനിവാരണ ധനസഹായം തലസ്ഥാന നഗരമായ അമരാവതിയുടെ വികസനത്തിനുള്ള ധനസഹായം തുടങ്ങിയവയുടെ അടുത്ത ഘട്ടം അനുവദിക്കണമെന്നും അദ്ദേഹം കമ്മീഷനോട് ആവശ്യപ്പെട്ടു ആന്ധ്രാപ്രദേശ് സന്ദർശിക്കുന്ന പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനുമായി ശ്രീ

ചന്ദ്രബാബു നായിഡു കൂടിക്കാഴ്ച നടത്തി

ഗുരുഗ്രാമിൽ ഹോൾസ്റ്റെയിൽ യൂണിയന്റെ ദിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ കാർഷിക വിപണിയെ അന്താരാഷ്ട്ര വിപണിയുമായി ബന്ധിപ്പിക്കുന്നത് വഴി കർഷകർക്ക് അഭിവൃദ്ധിയുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു

ജമ്മുവിലെ സതീഷ് ധവാൻ ബഹിരാകാശ ശാസ്ത്ര കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ശിൽപശാലയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

രാവിലെ ഒൻപതരയ്ക്ക് കളി ആരംഭിക്കും

പരമ്പര വിജയം ലക്ഷ്യമിട്ടിറങ്ങുന്ന ടീം ഇന്ത്യ ബാറ്റി ങ്ങിലും ബൌളിംഗിലും മികച്ച ് ഫോമിലാണ് ആദ്യ മത്സരത്തിൽ വിന്റ്സ് താരങ്ങൾക്ക് ഒരു തരത്തിലും ഇന്ത ്യയുടെ ചുണക്കുട്ടികളിട്ട് ്മേൽ സമ്മർദ്ദം ചെലുത്താനായിരുന്നില്ല ബാറ്റിങ്ങിൽ വിരാട് കോഹ്ലി പൃഥി ഷാ രവീന്ദ്ര ജഡേജ എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവച്ചപ്പോൾ രവീന്ദ്ര ജഡേജ രവിചന്ദ്രൻ അശ്വിൻ കുൽദിപ് യാദവ് എന്നിവർ ബൌളിംഗ് മികവിൽ വിന്റീ സിനെ ആശങ്കയിലാഴ്ത്തി

ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സ്കാഡിന്റെ അപേക്ഷയിൽ പ്രത്യേക ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റേതാണ് വിധി തിങ്കളാഴ്ചയാണ് നിഷാന്ത് അഗർവാൾ അറസ്റ്റിലായത്

എസ് ഐ കൈമാറിയ ചില രഹസ്യ വിവരങ്ങൾ നിഷാന്തിന്റെ ലാപ്ടോപിൽ നിന്ന് ലഭിച്ചു

പി മാരുടെ തദ്ദേശ വികസന ഫണ്ടിൽ നിന്നാണ് സംഭാവന നൽകിയത് പ്രകൃതി ദുരന്ത നിവാരണത്തിന് ഓരോ പാർലമെന്റ് അംഗത്തിനും തദ്ദേശ വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ സംഭാവന നൽകാമെന്ന് വൃവസ്ഥയുണ്ട്

ഇതിനെ തുടർന്ന് ഒഡീഷ തീരങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്

കനത്ത മഴയിലും ഗജപതി ഗഞ്ചം റായ്ഗഡ ജില്ലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് മോശം കാലാവസ്ഥയെ തുടർന്ന് നിരവധി ട്രെയിനുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് ആയിരക്കണക്കിന് യാത്രക്കാർ വിശാഖപട്ടണം പുരി ബാലസോർ റെയിൽവേസ്റ്റേഷനുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്

മഹേഷ് രാജിവച്ചു

മന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചെങ്കിലും ഗവൺമെന്റിനുള്ള പിന്തുണ തുടരുമെന്ന് അദ്ദേഹം അറിയിച്ചു

വീടുകളിൽ ഉറങ്ങിക്കിടന്നവരാണ് അപകടത്തിൽപ്പെട്ടത് മരിച്ചവരിൽ അഞ്ച് കുട്ടികളും ഉൾപ്പെടുന്നു

കനത്ത മഴയെത്തുടർന്നുള്ള വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും ഓരോ വർഷവും കൊളംബിയയിൽ നിരവധി പേരാണ് മരിക്കുന്നത്

പദ്മ പുരുസ്ക്കാർങ്ങളുടെ ചരിത്രത്തിലാദ്യമാ യാണ് ഇത്രയും അപേക്ഷകൾ പ്രിിക്കുന്നത്

പ്പെട്ട്മ പുരസ്കാരത്തിന് അപേക്ഷിക്കാനുളള നടപടികൾ ലളിതമാക്കിയ്തും അപേക്ഷകൾ ഓൺലൈൻ വഴിയാ ക്കിയതുമാണ് എണ്ണം കൂടാൻ കാരണം

ലക്ഷക്കണക്കിന് വരുന്ന ശബരിമല തീർത്ഥാടകർ ശബരിമലയിലേക്കെത്തുന്നതിനു മുമ്പുള്ള ഇടത്താവളങ്ങളിലെല്ലാം ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് ഈ പ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്